തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തി വൈറസ് ബാധ പടരുന്നത് തടയാനുള്ള ദേശ്ലീയതല പരിശീലനം ന്യൂഡൽഹിയിൽ നടന്നു

യെസ് ബാങ്ക് നിക്ഷേപകരുടെ പണം സുരക്ഷിതമായിരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ

ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ

തായ്ലന്റും മലേഷ്യയും സന്ദർശിച്ച ഇയാളെ ആശുപത്രിയിൽ കോറന്റൈൻ സംവിധാനത്തിലാക്കിയിരിക്കുകയാണ്ടെന്ന് ി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സ്പ്രെഷ്യൽ സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചു ഈ സാഹുചരൃത്തിൽ എല്ലാ അന്താരാഷ്ട്ര യാത്രാക്കാരും വിമാനത്താവള്ങ്ങളിൽ ് പരിശോധനയ്ക്ക് വിധേയരാകണമെന്നത് നിർബ്ന്ധമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തി ഡൽഹിയിലെ ആശുപത്രി ഉടമകളുമായും അദ്ദേഹം ചർച്ച നടത്തി കൊറോണ വൈറസിനെ നേരിടാനുളള തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തി

ഈ കാലയളവിൽ രജിസ്റ്ററിൽ ഹാജർ രേഖപ്പെടുത്തിയാൽ മതിയാകും

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വോയിസ് കൊറോണ വൈറസ് ഉയർത്തുന്ന വെല്ലുപ്പിളികൾക്കിടയിലും ഇന്ത്യൻ ബാങ്കിംഗ് രംഗം ശക്തമാണ്

ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കൊറ്റോണ് വൈറസ് ചെലുത്തുന്ന സ്വാധീനം ഇന്ത്യയെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ചൈനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും ഇതിനെ നേരിടാൻ ് നടപടി സ്വീകരിക്കുമെന്നും റിസർവ്വ ബാങ്ക് ഗവർണർ പറഞ്ഞു ആഗോളമായി സാമ്പത്തികരംഗത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ് കൊറോണ വൈറസ് ബാധയെന്നും ശ്രീ ശക്തികാന്തദാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ മാധ്യമപ്രവർത്തകർ ഗുണഭോക്താക്കൾ എന്നിവരെ ഉൾപ്പെടുത്തി ഈ മരുന്നുകളെപ്പറ്റി പാനൽ ചർച്ചകളും സംഘടിപ്പിക്കും

എല്ലാ വർഷവും മാർച്ച് ഏഴാം തീയതി ജൻ ഔഷധി ദിവസമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ

യെസ് ബാങ്ക് ജീവനക്കാരുടെ ശമ്പളവും ജോലിയും ഒരു വർഷത്തേയ്ക്ക് ഉറപ്പു നൽകുന്നതായും മന്ത്രി പറഞ്ഞു

ബാങ്ക് നട്പടി ക്രമങ്ങളിൽ അന്വേഷണ ഏജൻസികൾ അഴിമതി കണ്ടെത്തിയിരുന്നു

യെസ് ബാങ്കിലെ നിലവിലെ സ്ഥിതിയ്ക്ക് കാരണം റിസർവ്വ് ബാങ്ക് വിലയിരുത്തി വരികയാണെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

മന്ദറിനെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി പൊലീസ് സമർപ്പിച്ച ഹർജിയിന്മേൽ ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡേ അടങ്ങുന്ന മൂന്നംഗ ബഞ്ചാണ് വാദം കേൾക്കുന്നത്

പ്പോയ്സ് ഡൽഹിയിലെ അക്രമങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളത്തിന്റെ പശ്ചാത്ത്ലത്തിൽ ഇന്ന് തുടർച്ചയായ അഞ്ചാം ദിവസവും രാജ്യസഭ ത്ടസ്സപ്പെട്ടു

സീറ്റിലേക്ക് മടങ്ങാൻ ഇവരോട് ശ്രീ

ലോക്സഭയിലും ശബ്ദായമാനമായ അന്തരീക്ഷമായിരുന്നു ഇതിനിടെ ചർച്ച കൂടാതെ രണ്ട് ബില്ലുകൾ പാസാക്കി സഭ പിരിയുകയായിരുന്നു

നേരത്തെ സഭ സമ്മേളിച്ച ഉടൻ കോൺഗ്രസ് ഡി എം കെ

എം സി ഇടത് പാർട്ടികളിലെ അംഗങ്ങൾ മുദ്രാവാകൃങ്ങൾ മുഴക്കി നടുത്തളത്തിലിറങ്ങുകയായിരുന്നു സഭ നിയന്ത്രിച്ച കിരിത് പ്രേംജിഭായ് സോളങ്കി സീറ്റുകളിലേക്ക് മടങ്ങാൻ അഭ്യർത്ഥിച്ചെങ്കിലും കൂട്ടാക്കാത്തതിനെ തുടർന്ന് സഭ നിർത്തിവച്ചു ഈ സമയം ഏഴ് കോൺഗ്രസ് അംഗങ്ങളുടെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് പാർട്ടി നേതാവ് അധിർ രഞ്ജൻ ചൌധരി ആവശ്യപ്പെട്ടു

വഴിവിളക്കുകൾ അടിയന്തരഘട്ടങ്ങളിലെ ചികിത്സ ആംബുലൻസ് ഭക്ഷ്യ സുരക്ഷ കുടിവെള്ളം വാഹനപാർക്കിംഗ് ഇ ടോയ്ലറ്റ് എന്നിവയുടെ അവസാനവട്ട പ്രവൃത്തികൾ നടന്നുവരുന്നു

അമിത വേഗതയിലായിരുന്ന ദേശീയപാതയിലെ ഡിവൈഡറിൽ തട്ടിയ ശേഷം മറ്റൊരു കാറുമായി കൂട്ടിമുട്ടിയാണ് അപകടമുണ്ടായതെന്ന് പൊലീസ് അറിയിച്ചു

രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശ്രീ ബിമൽ ജുൽകയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു

ഐ

ഐ

സി

മെൽബണിലാണ് മത്സരം